ശബ രിമലയിലും ഗുരുവായൂരിലും വൻ ഭക്തജനത്തിരക്ക്

എ പ്രചാര ണത്തിനായി രാജ്യരക്ഷാമന്ത്രി നിർമല സീതാരാമനും ഇന്നെത്തും

ജെ പി നൽകിയ കോടതിയലക്ഷ്യ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും

പി കുഞ്ഞിമുസാഅന്തരിച്ചു

കണിയൊരുക്കി യും കൈനീട്ടം നൽകിയും ഒത്തുചേർന്നും ആഹ്ലാദകരമായ വി ആഘോഷത്തിലാണ് മലയാളികൾ

ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഗവർണർ ജസ്റ്റിസ് പി സ ദാശിവവും മുഖ്യമന്ത്രി പിണറായി വിജയനും വിഷു ആശംസകൾ നേർന്നു സമൃദ്ധിയുടെയും പുരോഗതിയുടെയും പ്രതീക്ഷയുണർത്തുന്ന വി ഷു വരും വർഷത്തിലുടനീളം സമാധാനവും ഐശ്ചര്യവും ഒരുമ യും നൽകട്ടെയെന്ന് ഗവർണർ ആശ്ര്സിച്ചു മഹാപ്രളയത്തിൽ തകർന്ന കാർഷിക മേഖലയെ വീണ്ടെടുക്കാ നുള്ള ശ്രമങ്ങൾക്ക് നല്ല ഫലം കണ്ടുതുടങ്ങിയത് പ്രതീക്ഷ നൽകു ന്നതായി മുഖ്യമന്ത്രി പിണറായ വിജയൻ വിഷുദിന സന്ദേശത്തിൽ പറഞ്ഞു ശബരിമലയിൽ വിഷു ഉത്സവമായ ഇന്ന് വൻ ഭക്തജനത്തിരക്ക് പുലർച്ചെ മേൽശാന്തി നട തുറന്ന് ശ്രീകോവിലിലെ വിളക്കുകൾ തെളിയിച്ച് ഭഗവാനെ ആദ്യം വിഷുക്കണി കാണിച്ചു

അയ്യപ്പ ദർശ നം നടത്തിയ ഭക്തർക്ക് തന്ത്രിയും മേൽശാന്തിയും നാണയങ്ങൾ വിഷുക്കൈ നീട്ടമായി നൽകി

ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷു കണി ദർശനത്തിന് അഭൂത പൂർവ്വമായ ജനതിരക്കാണനുഭവപ്പെട്ടത് പുലർച്ചെ രണ്ടര മുതൽ മൂന്നരവരെയായിരുന്നു കണി ദർശനം

കണിദർശനം അവസാനിച്ചതോ ടെ വാകചാർത്തും അഭിഷേകവുമടക്കം പതിവ് പൂജകളും ആരം ഭിച്ചു വിഷുവിനോടനുബന്ധിച്ച് കണ്ണൂരിലെ പ്രധാനക്ഷേത്രങ്ങളി ലെല്ലാം നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്

തലശേരി തിരുവ ങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലും വിഷു വിളക്ക് ഉത്സവത്തിന് തുടക്കമായി മാവി ലാക്കാവിലെ അടിയുത്സവത്തിനും തുടക്കമായിട്ടുണ്ട് കാസർകോട് നീലേശ്വരം മന്ദംപുറം കാവ് തളിയിൽ ശിവക്ഷേത്രം എന്നിവിടങ്ങളിലും രാവിലെ മുതൽ ഭക്തജനത്തിരക്ക് അനുഭവപ്പെ ട്ടു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കോൺഗ്രസ് അധ്യക്ഷൻ രാ ഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തും ഇന്ന് രാത്രി പത്തിന് തിരു വനന്തപുരത്ത് എത്തുന്ന അദ്ദേഹം നാളെ രാവിലെ പത്തനാപുര ത്തും പത്തനംതിട്ടയിലും വൈകുന്നേരം ആലപ്പുഴയിലും തിരു വനന്തപുരത്തും നടക്കുന്ന പൊതു പരിപാടികളിൽ പ്രസംഗിക്കും അന്തരിച്ച കേരള കോൺഗ്രസ് നേതാവ് കെഎം മാണിയുടെ വസ തിയും അദ്ദേഹം സന്ദർശിക്കും തുടർന്ന് രാഹുൽ ഗാന്ധി കണ്ണൂരി ലേക്ക് പുറപ്പെടും

ഡി എഫ് നേതൃയോഗത്തിൽ പങ്കെടുക്കും കണ്ണൂർ കാസർഗോഡ് വട കര മണ്ഡലങ്ങളിലെ യു

എഫ് സ്ഥാനാർത്ഥികൾക്ക് പുറമെ കെ

സി ഡി സി സി ഭാരവാഹികളും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരും യു

എഫിലെ പ്രധാന കക്ഷി നേതാക്കളും നേതൃയോഗത്തിൽ പങ്കെടുക്കും എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാജ്യരക്ഷാ മന്ത്രി നിർമലാ സീതാരാമൻ ഇന്ന് കേരളത്തിലെത്തും വൈകീട്ട് അഞ്ചേകാലിന് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നടക്കുന്ന തെരഞ്ഞെടു പ്പ് പ്രചാരണപരിപാടിയിൽ അവർ പങ്കെടുക്കും വൈകീട്ട് ഏഴിന് തിരുവനന്തപുരം തീരദേശ മേഖലയിലെ റോഡ് ഷോയിലും നിർമ ല സീതാരാമൻ പങ്കെടുക്കും നാളെ കണ്ണൂരിലെത്തുന്ന കേന്ദ്രമന്ത്രി എൻ

എയുടെ തെരഞ്ഞെടുപ്പ് പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നടക്കുന്ന പരിപാടിയിൽ സംബന്ധിക്കും ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത് ഷായും നാളെ കേരളത്തി ലെത്തും തൃശൂരിലെയും ആലുവിയിലെയും തെരഞ്ഞെടുപ്പ് പ്രചാ രണത്തിൽ അദ്ദേഹം പങ്കെടുക്കും സിപിഐഎം പൊളിറ്റ്ബ്യൂറോ അംഗം വൃന്ദകാരാട്ട് നാളെ കണ്ണൂ രിൽ എൽഡിഎഫ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും ് വ്യാഴാഴ്ച ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടു പ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം നാളെ അവസാനി ക്കും

ലോക്സഭ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട വോട്ടെടുപ്പ് നടന്ന മ ഹാരാഷ്ട്രയിലെ നാല് പോളിംഗ് ബുത്തുകളിൽ റീപോളിംഗ് അൽ പസമയത്തിനകം ആരംഭിക്കും നാടിനെ ചേരിതിരിവിലേക്കും വർഗ്ഗീയ സംഘർഷങ്ങളിലേക്കും തള്ളി വിട്ടതാണ് മോദി ഭരണത്തിന്റെ നേട്ടമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി പറഞ്ഞു എറണാകുളം പുത്തൻകുരിശിൽ യു

എഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിപി ഐഎമ്മിന്റെ അക്രമരാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നും എ കെ ആന്റണി ആവശ്യപ്പെട്ടു പ്രതിപക്ഷ പാർട്ടികളെ കള്ളക്കേസുകളിൽ കൂടുക്കാൻ കോൺ ഗ്രസും ബി

പിയും സി ബി ഐ യെയും എൻഫോഴ്സ്മെന്റ് ഡ യറക്ട്രേറ്റിനെയും ദുരുപയോഗം ചെയ്യുന്നതായി ബി

അ ധ്യക്ഷ മായാവതി ആരോപിച്ചു ഛത്തീസ്ഗഡിലെ ജൻജിർ ചമ്പ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ സംസാരിക്കു കയായിരുന്നു അവർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മനഃപൂർവ്വം വർഗ്ഗീയ സംഘർഷം സൃഷ്ടിക്കാനാണ് സിപിഎം ശ്രമിക്കുന്നതെന്ന് ഹിന്ദു ഐക്യവേദി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആരോപിച്ചു ഹിന്ദു ആചാര്യന്മാരെ അധിക്ഷേപിക്കുന്ന നിലപാട് പ്രതിഷേധാർഹമാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു ലോക്സഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ലോ ക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവ് ക ണക്ക് പരിശോധന നാളെ വൈകീട്ട് നടക്കും

റഫാൽ യുദ്ധ വിമാന ഇടപാടിൽ പ്രധാനമന്ത്രി മോഷണം നടത്തി യതായി സുപ്രിംകോടതി വൃക്തമാക്കിയെന്ന രാഹുൽഗാന്ധിയുടെ പരാമർശത്തിനെതിരെ ബിജെപി നൽകിയ കോടതിയലക്ഷ്യ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും

പി മീനാക്ഷിലേഖി ക്രിമി നൽ കോടതിയലക്ഷ്യ ഹർജി നൽകിയത്

ഡി എഫ് ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ നൽകിയ സത്യ വാങ്മൂലം എൽ ഡി എഫ് ഗവൺമെന്റ് പിൻവലിച്ചതാണ് ശബരി മലയിലെ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥ കാരണമെന്ന് മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആലപ്പുഴയിൽ പറഞ്ഞു

എഫ് എന്നും വിശ്വാ സികൾക്കൊപ്പമാണെന്ന് അദ്ദേഹം വൃക്തമാക്കി മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ കെ പി കുഞ്ഞിമൂസ അന്തരിച്ചു

സീനിയർ ജേണലിസ്റ്റ് ഫോറം സംഘാടകനും സത്യധാര എഡിറ്ററുമായിരുന്നു ചന്ദ്രിക ന്യൂസ് എഡിറ്ററും ചന്ദ്രിക ആഴ്ചപ്പതിപ്പ് എഡിറ്ററായും പ്രവർത്തിച്ച ഇദ്ദേഹം ലീഗ് ടൈംസിന്റെ എഡിറ്ററായും സേവനമനുഷ്ടിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ഒരുമണിക്ക് പന്നിയങ്കര ജുമുഅത്ത് പള്ളിയിൽ മയ്യിത്ത് നമസ്കാരത്തിന് ശേഷം കണ്ണംപറമ്പ് ഖബർസ്ഥാനിൽ ഖബറടക്കും മുതിർന്ന ഐഎഎസ് ഉദ്യോഗസ്ഥനും കേന്ദ്ര ഷിപ്പിങ് ഉപരി തല ഗതാഗത വകുപ്പ് മുൻസെക്രട്ടറിയുമായ പി എം ഏബ്രഹാം തിരുവനന്തപുരത്ത് അന്തരിച്ചു

ശേഷിക്കുന്ന നാല് സ്ഥാനങ്ങളി ലേക്ക് ആറു പേരാണ് സാധ്യതാ പട്ടികയിലുള്ളത്

എൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ്റൈഡേഴ്സിനെയും ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ് സ് ഹൈദരാബാദിനെയും പരാജയപ്പെടുത്തി കൊൽക്കത്തയെ അ ഞ്ചു വിക്കറ്റിന് വീഴ്ത്തിയ ചെന്നൈ സൂപ്പർ കിങ്സ് പോയിന്റ് പ ട്ടികയിൽ ഒന്നാം സ്ഥാനം ഉറപ്പാക്കി

ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമാ യി ഏറ്റുമുട്ടും രാത്രി എട്ടിന് മൊഹാലിയിലാണ് മത്സരം സംസ്ഥാനത്തെ ആറ് ജില്ലകളിൽ ഇന്ന് താപനില രണ്ട് മുതൽ നാല് ഡിഗ്രി വരെ ഉയരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു തിരുവനനന്തപുരം കോട്ടയം ആ ലപ്പുഴ കൊല്ലം പാലക്കാട് കോഴിക്കോട് ജില്ലകളിലാണ് താപനില ഉയരുക പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം കണ്ണൂർ കാസർകോട് ജില്ലകളിൽ താപനില രണ്ട് മുതൽ മൂന്ന് ഡി ഗ്രി വരെയും വർധിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീ ക്ഷണ കേന്ദ്രം വ്യക്തമാക്കി തെരുവിൽ അലയുന്നവർക്ക് സംരക്ഷണം നൽകാൻ സമൂഹ ത്തിന് ഉത്തരവാദിത്വമുണ്ടെന്ന് മന്ത്രി എ

തെരുവിലെ മക്കൾ ചാരിറ്റി ഇന്ത്യയുടെ ധനശേഖരണാർത്ഥം കോ ഴിക്കോട്ട് നടത്തിയ സ്ട്രീറ്റ്ലൈറ്റ് പരിപാടി ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു മന്ത്രി

കണ്ണൂർ തില്ലങ്കേരിയിൽ ലോറിയിൽ നിന്ന് മാർബിൾ ദേഹത്തു വീണ് ഒരാൾ മരിച്ചു